വിജയൻ ഇന്ന് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും

പ്രതിജ്ഞാബദ്ധമാണെന്ന് സംസ്ഥാന ഭരണകൂടം

മാറ്റാൻ ആവശ്യപ്പെടില്ലെന്ന് ദേശീയ ടെന്നീസ് ഫെഡറേഷൻ

മലപ്പുറത്താണ് കൂടുതൽ പേർ ക്യാമ്പുകളിലുള്ളത്

ഇതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ തെക്കൻ ്ജില്ലക്ളിൽ ശക്തമായ മഴയ്ക്ക് സാധൃതയുള്ളതായി കാലാവസ്ഥ്യ പ്പിദ്ദ്ഗ്ദ്ധർ ഒറീസയ്ക്കും പശ്ചിമബംഗാളിനും ഇടയിൽ ബംഗാൾ ഉൾക്കടലിലായി നിലകൊള്ളുന്ന ന്യൂനമർദ്ദം ബുധനാഴ്ചയോടെ അതിതീവ് ഏറ്റുനമർദ്ദമാകുമെന്നാണ് വിലയിരുത്തൽ

പത്തനംതിട്ട തൃശൂർ പാലക്കാട് കോഴിക്കോട് കാസർകോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു

പ്രൊഫഷണൽ കേരളേജുകൾക്കും കേന്ദ്രീയ വിദ്യാലയത്തിനും മദ്രസകൾക്കും അങ്കണവാടികൾക്കൂർ അവധിയാണ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശ്ചൂർ എറ്ണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകൾക്കാണ് അവസ്സ് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും പരീക്ഷകൾ മാറ്റിവച്ചിട്ടുണ്ട്

സാംഗ്ളി കോലാപ്പൂർ ജില്ലകളിലെ നദികളിൽ ജലനിരപ്പ് താണിട്ടുണ്ട്

ഉത്തരാഖണ്ഡിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു

ജയശങ്കർ

ക്രമസമാധാനം പാലിക്കുന്നതിനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ഐ ജി എസ്

പള്ളികളിൽ ഈദ് പ്രാർത്ഥനകളും നമസ്കാരവും സമാധാനപരമായി നടന്നു വെടിവയ്പ് ഒരിടത്തുമുണ്ടായിട്ടില്ല ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഐ

തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യവേ ആയുഷ് സഹമന്ത്രി ശ്രീപദ് യെശോ നായിക് ആണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയുടെ തനത് വൈദൃശാസ്ത്ര മേഖലകളെക്കുറിച്ചുള്ള ഗവേഷണം ശക്തിപ്പെടുത്താൻ എയിംസ് മാതൃകയിൽ സ്ഥാപനങ്ങൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന ആരോഗൃ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആറുമാസത്തെ പ്രത്യേക കോഴ്സ് ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു

ഡിസ്കവറി ചാനലിൽ ഇന്നലെ രാത്രി സംപ്രേഷണം ചെയ്ത മാൻ വേഴ്സ്ക്സ് വൈൽഡ് എന്ന പരിപാടിയിൽ അവതാരകൻ ബിയർ ഗ്രിൽസുമായി അനുഭവങ്ങൾ പങ്കിടുകയായിരുന്നു പ്രധാനമന്ത്രി പ്രകൃതിക്കുന്നാം ചൂഷണം ചെയ്യരുതെന്നും വരും തലമുറയ്ക്കായി സംരക്ഷിക്കണമെന്യൂർ ശ്രീ

നിബിഡ വനങ്ങളുടെയും സസ്യജന്തു ജാലങ്ങളൂട്ടെയും മനോഹരമായ കുന്നുകളുടെയും നദികളുടെയും നാടാണ് ഇന്ത്യ

തമിഴ്നാട്ടിലെ മധുരയിൽ അന്താരാഷ്ട്ര ഭക്ഷ്യസംസ്കരണ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി

എന്നാൽ സുരക്ഷാ പരിശോധന ശക്തമാക്കാൻ ആവശ്യപ്പെടും

ഡേവിസ് കപ്പ് ഉഭയകക്ഷി കായികമേള അല്ലെന്നും രാജ്യാന്തര മത്സരമാണെന്നും കേന്ദ്രമന്ത്രി ്കിരൺ റിജിജു പറഞ്ഞു

ഹംഗറിയിലെ വാർപ്പലോട്ടയിൽ നടന്ന് എഫ് ഐ

പ്രാർത്ഥനകൾ സമാധാനപരമായിരുന്നു